സംസ്ഥാനത്ത് പുതിയ കുഴൽ കിണറുക്ൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഈ വർഷം സംസ്ഥാനത്ത് ലോഡ്ഷെഡ്ഡിംങോ പവർകട്ടോ ഉണ്ടാ കില്ലെന്ന് മന്ത്രി എം എം മണി സംസ്ഥാനതല പഞ്ചായത്ത് ദ്ദിനാഘോഷം മന്ത്രി ഡോ തോമസ് ഐസക് വൈത്തിരിയിൽ ഉദ്ഘാടനം ചെയ്തു അന്തരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം എസ് മണിയുടെ സംസ്കാരം വൈകിട്ട് അഞ്ചിന് തിരുവനന്തപുരത്തെ കുമാരപുരം വീട്ടുവളപ്പിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മികവ് തെളിയിച്ച മുഴുവൻ കായിക പ്രതിഭകൾക്കും ഗവ ജോലി നൽകുമെന്ന് മന്ത്രി ഇ

ഇതിനായി സൂപ്പർ ന്യൂമററി തസ്തിക സൃഷ്ടിക്കും

കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ സ്പോർടെക്സ് സ്പോർട്സ് എക്സ്പോ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഷൈനി വിൽസൺ വിൽസൺ ചെറിയാൻ ഷറഫലി തുടങ്ങിയ കായിക താരങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു

കൊറോണ വൈറസ് ബാധിത ചൈനയിൽ നിന്ന് ഗവൺമെന്റ് ഒഴി പ്പിച്ചുകൊണ്ടുവന്ന് മനേസറിലെ ഇൻഡോ ടിബറ്റൻ ബോർഡൽ പൊലീസ് ക്യാമ്പിൽ താമസിപ്പിച്ചിരുന്ന എല്ലാവരെയും ഇന്ന് സന്തം നാട്ടിലേക്ക് തിരിച്ചയക്കും

ഇവരിലാർക്കും കൊറോണ ലക്ഷണം കണ്ടെത്തിയിട്ടില്ല

തണ്ടപ്പേര് ആധാറുമായി ബന്ധിപ്പിക്കൂന്നതിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു ആധാ്ർ ബന്ധിപ്പിക്കുന്നതോടെ സംസ്ഥാനത്ത് എവിടെ ഭൂമിയുണ്ടെങ്കിലും ഒറ്റ തണ്ടപ്പേരിലേക്ക് മാറു മെന്നും മന്ത്രി സ്വകാര്യ വാർത്താചാന്റ്ലിനോട് പറഞ്ഞു ഒരു വൃക്തിക്ക് കൈവശം വയ്ക്കാനാകുന്ന് പരമാവധി ഭൂമി ഏഴര ഏക്കറാണ് സംസ്ഥാനത്ത് പുതിയ് കുഴൽ കിണറുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കോഴിക്കോട് പറഞ്ഞു ആസന്നമായ വരൾച്ച നേരിടാൻ കേരളം സജ്ജമാണ്

ഭവാനി പുഴയ്ക്ക് കുറുകെ പുതിയ ഡാമിന്റെ വിശ്ദമായ പദ്ധതി രേഖ തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറി യിച്ചു കാലാവസ്ഥാ വൃതിയാനമാണ് സംസ്ഥാനത്ത് വർധിക്കുന്ന ചൂടിന് കാരണമെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് സിഡബ്ല്യൂആർഡിഎമ്മിൽ ഭൂഗർഭജല സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി എത്ര വരൾച്ചയുണ്ടായാലും ഈ വർഷം സംസ്ഥാനത്ത് ലോഡ് ഷെഡ്സിംഗോ പവർകട്ടോ ഉണ്ടാകില്ലെന്ന് മന്ത്രി എം എം മണി കോഴിക്കോട്ട് പറഞ്ഞു കോഴിക്കോട്ട് കെ എസ് ഇ ബിയുടെ വൈദ്യുതി അദാലത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു മന്ത്രി വരൾച്ച നേരിടാൻ വൈദ്യുതിബോർഡ് സജ്ജമാണെ ന്നും വൈദ്യുതി ചാർജ്ജ് വർധിപ്പിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു

റോഡിൽ ഫ്ളക്സ് ബോർഡുകൾ സ്ഥാപിച്ചാൽ ക്രിമിനൽ കേസെ ടുക്കുമെന്ന് ഗവൺമെന്റ് ഹൈക്കോടതിയെ അറിയിച്ചു റോഡ് സുരക്ഷാ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച എല്ലാ ഉത്തരവുകളും നട പ്പാക്കുമെന്നും ഗവൺമെന്റ് ഉറപ്പ് നൽകി പൊലീസ് സ്റ്റേഷനുകളിലേക്ക് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറിക്കഴിഞ്ഞതായി സത്യവാങ്മൂല ത്തിൽ ഗവൺമെന്റ് വ്യക്തമാക്കി

വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി എട്ട് മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ ജില്ലയിലെത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്

ഹജ്ജ് അപേക്ഷ താമസ സ്ഥലങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടെ ഹജ്ജ് നടപടികൾ പൂർണമായി ഡിജിറ്റലാക്കാനും നടപടികൾ സുതാര്യമാക്കാനും കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി പറഞ്ഞു നൂറ് ശതമാനം ഡിജിറ്റലാകുന്ന ഏകരാജ്യമാണ് ഇന്ത്യയെന്നും ഇതോടെ ഇട നിലക്കാരില്ലാതെ നേരിട്ട് ഹജ്ജിന് അപേക്ഷിക്കാൻ വഴിതെളിഞ്ഞുവെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു

ചില പ്രത്യേക ലക്ഷ്യങ്ങളോടെ തെറ്റായ പ്രചാരണമാണ് നിയമത്തിനെതിരെ നടക്കുന്നതെന്ന് അവർ കത്തിൽ അഭിപ്രായപ്പെട്ടു അതീവ ഗൌരവത്തോടെ ഈ വിഷയങ്ങൾ കാണണമെന്നും ശക്തമായ നടപടിയെടുക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കെപിസിസി രാഷ്ട്രീയകാര്യസമിതി തിരുവനന്തപുരത്ത് ആരംഭിച്ചു പൊലീസിന്റെ ആയുധങ്ങളും വെടിയുണ്ടകളുംകാണാതായത് സംബ ന്ധിച്ച സിഎജി റിപ്പോർട്ടിൽ സ്വീകരിക്കേണ്ട് നിലപ്പാട് യോഗത്തിൽ പ്രധാന ചർച്ചയാകുമെന്നാണ് റിപ്പോർട്ട് അന്തരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം എസ് മണിയുടെ സംസ്കാരം വൈകീട്ട് അഞ്ചിന് തിരുപനന്തപുരം കുമാരപുരത്തെ വീട്ടു വളപ്പിൽ നടക്കും നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി കടകംപളളി സുരേന്ദ്രൻ പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റ് മൂല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ അനു ശോചിച്ചു മാധ്യമ പ്രവർത്തന മേഖലക്കും സമൂഹത്തിനും അമൂല്യ സംഭാ വനകൾ നൽകിയ വൃക്തിയാണ് അദ്ദേഹമെന്ന് മുഖ്യമന്ത്രി അനുശോച നകുറിപ്പിൽ പറഞ്ഞു കേരള കൌമുദിയുടെ മുൻ പത്രാധിപരും കലാ കൌമുദിയുടെ സ്ഥാപക പത്രാധിപരുമായിരുന്നു അദ്ദേഹം കുമാരപുരത്തെ വീട്ടിൽ പുലർച്ചെയായിരുന്നു അന്ത്യം സംസ്ഥാന ഗവൺമെന്റിന്റെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരമ ടക്കം ഒട്ടേറെ അവാർഡുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് കേരള ആരോഗൃ സർവകലാശാല ഇന്റർസോൺ കലോത്സവം മന്ത്രി കെ

ശൈലജ വൈകീട്ട് കോഴിക്കോട്ട് ഔപചാരികമായി ഉദ്ഘാ ടനം ചെയ്യും

ചടങ്ങിൽ മൂലൂരിന്റെ ഛായാചിത്രം അനാഛാദനം ചെയ്യും മന്ത്രി കടകംപളളി സുരേന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും

ഇതര സ്വകാര്യ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്കെ തിരായ അതിക്രമങ്ങൾ തടയാൻ ആഭ്യന്തര കമ്മറ്റികൾ രൂപീകരിച്ചിട്ടു ണ്ടെന്ന് ഉറപ്പുവരുത്താൻ മാർച്ച് ഒന്നു മുതൽ എട്ട് വരെ വനിതാ ശിശു വികസന വകുപ്പ് സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തും സമിതി രൂപീ കരിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ സ്ഥാപന ഭൂമധാവികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും കർഷക കടാശ്വാസ കമ്മീഷൻ മാർച്ചിൽ ആറ് ജില്ലകളിൽ സിറ്റിംഗ് നടത്തും

രാവിലെ പത്തിന് ആരംഭിക്കുന്ന സിറ്റിംഗിൽ പങ്കെടുക്കാൻ നോട്ടീസ് ലഭിച്ചവർ ബന്ധപ്പെട്ട രേഖകളുമായി എത്തേണ്ടതാണ്

ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലെ കെ

സമകാലിക ലോകത്ത് സ്ത്രീകൾ പരിമിതികൾ മറികടന്ന് മുന്നേറാൻ പ്രാപ്തരാവണമെന്ന് ഹരിതകേരള മിഷൻ എക്സിക്യൂട്ടീവ് വൈസ് ചെയർപേഴ്സൺ ടി

സംസ്ഥാനതല പഞ്ചായത്ത് ദിനാഘോഷത്തിന്റെ ഭാഗമായി നവകേരള നിർമ്മിതിയും സ്ത്രീ മുന്നേറ്റവും എന്ന വിഷയത്തിൽ വനിത സെമിനാർ ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു അവർ

കൊല്ലം സ്വദേശികളായ രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ അഞ്ച് പേരെ എയർ കസ്റ്റംസ് ഇന്റലിജൻസ് കസ്റ്റഡിയിലെടു ത്തു

വൈത്തിരിയിൽ ജില്ലാ കളക്ടർ ഡോ

എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഒരു പ്രധാന കുളം ഏറ്റെടുത്ത് ശുചീകരണം നടത്തുന്ന മിഷൻ തെളിനീർ പദ്ധതിക്ക് കോഴിക്കോട്ട് തുടക്കം ജില്ലാതല ഉദ്ഘാടനം പെരുവയിലിൽ മന്ത്രി ടി

എ ഖാദർ പറഞ്ഞു

ചീഫ് ജസ്റ്റിസ് എസ് മണികുമാ റിന്റെ നേതൃത്വത്തിൽ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജി സ്റ്റർ ചെയ്ത അംഗങ്ങൾക്ക് ഇൻഷൂറൻസ് പദ്ധതി ഏർപ്പെടുത്തും

ഇതിന്റെ ഉദ്ഘാടനം തിരുവനന്ത പുരത്ത് മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും നെടുങ്കണ്ടം കസ്റ്റഡി മരണ കേസിൽ അറസ്റ്റിലായ മുൻ സബ് ഇൻസ്പെക്ടർ സാബുവിനെ ശനിയാഴ്ച്ച വരെ സിബിഐ കസ്റ്റഡിയിൽ വിട്ടു

അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മറ്റി പുനസംഘടിച്ചു പ്രസിഡന്റായി ജയിംസ് ഇടയത്തിലി നേയും സെക്രട്ടറിയായി ശരവണൻ പാടൂരിനേയും നിയമിച്ചതായി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

കെ ആലപ്പാട് അറിയിച്ചു